ചന്ദ്രശേഖരൻ

തോമസ് ഐസക്

മേഴ്സിക്കുട്ടിയമ്മ

പ്രളയദുരന്തനാളുകളിൽ കേരളം ഒറ്റക്കെട്ടായിനിന്നതു പോലെ നവകേരളനിർമ്മിതിയിലും ആ കൂട്ടായ്മ അതൃന്താപേക്ഷിതമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു സംസ്ഥാന ഭവന നിർമാണവകുപ്പും എൻ ഐ ടി കോഴിക്കോടും സംയുക്തമായി നവകേരള ത്തിന് പുതിയ ഭവന സാക്ഷരത എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദുരന്തങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് വീടുനിർമ്മാണത്തിൽ എന്തുമാവാമെന്ന വിചാരം പുലർത്തുന്നവർ ഏറെയുണ്ടെന്നും മന്ത്രി പറഞ്ഞു പണക്കാർ ആഡംബര വീടുകൾ നിർമ്മിക്കുമ്പോൾ പാവങ്ങൾ നിർമാണ സാമഗ്രികൾ കിട്ടാൻ ബുദ്ധിമുട്ടുകയാണ് ഇതിന് പരിഹാരം നിയമനിർമ്മാണമല്ല നവസാമൂഹസൃഷ്ടിയാണ് വേണ്ടത് പ്രളയത്തിൽ വീട് നഷ്ടപെട്ട് പുറമ്പോക്കിൽ കഴിയുന്നവർക്ക് സുരക്ഷിതയിടങ്ങളിൽ വീട് വെച്ച് നൽകാൻ സാഹചര്യമൊരുക്കുകയാണ് ഗവണ്മെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ധ്യക്ഷനായിരുന്നു ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി വകുപ്പുകൾ ചെലവുചുരുക്കാൻ തയ്യാറാകണമെന്ന് മന്ത്രി ഡോ

അതേ സമയം വരുമാനം കൂട്ടാൻ സ്വീകരിക്കുന്ന ഇത്തരം നട പടികൾ വാണിജ്യവ്യാപാരമേഖല ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയു ണ്ടെന്നും മന്ത്രി സംശയം പ്രകടിപ്പിച്ചു ശബരിമലയിൽ മകരസംക്രമപൂജയ്ക്കും മകരവിളക്കിനും ഇനി രണ്ടു ദിവസം മാത്രം തിരക്ക് കണക്കിലെടുത്ത് നാളെ വൈകുന്നേരം മുതൽ സ്വകാര്യവാഹനങ്ങൾ ളാഹ വരെയാക്കി പരിമിതപ്പെടുത്തും ളാഹയിൽ നിന്നും കെ

സി ബസ്സുകളിൽ തീർത്ഥാടകരെ പമ്പയിലെത്തി ക്കാനാണ് തീരുമാനമെന്ന് പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു എരുമേലിയിൽ നിന്ന് വരുന്ന സ്വകാര്യവാഹനങ്ങളും നിലക്കലി ലേക്ക് കടത്തിവിടില്ല മകരവിളക്ക് ദിനമായ മറ്റന്നാൾ ഉച്ചയ്ക്ക് രണ്ട് മുതൽ കെ എസ്

സി ബസ്സൂകളും പമ്പയിലേക്ക് കടത്തിവിടില്ല മകരവിള ക്കിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടു ത്തിയതായി പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു ശബരിമലക്ക് പുറത്ത് പത്തനംതിട്ട ജില്ലയിൽ മകരജ്യോതി ദർശിക്കാവുന്ന സ്ഥലങ്ങളിലും ഭക്തർക്ക് സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാനസൌകര്യങ്ങളും ഒരു ക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പമ്പ ഹിൽടോപ്പിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് പാർക്കിംഗും മകരജ്യോതി ദർശനവും നിരോ നിച്ചിട്ടുണ്ട്

മകരവിളക്കിന് ശബരിമല ധർമശാസ്താ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര അൽപസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഇന്ന് പുലർച്ചെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ആഘോഷത്തോടെ ക്ഷേത്രത്തിൽ എത്തിച്ച തിരു വാഭരണം ചാർത്തിയാണ് നട തുറന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ പന്തളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടുമൂന്നുമാസമായി തുടരുന്ന ശബരിമലയിലെ നടപടികൾ ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിൽനിന്ന് അകറ്റാൻ കാരണമായെന്ന് പന്തളം രാജപ്രതിനിധി ശശികുമാരവർമ്മ പറഞ്ഞു ശബ്ബരിമലയിൽ അയ്യപ്പഭക്ത ന്മാരുടെയല്ല ആക്ടിവിസ്റ്റുകളുടെ കാലമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർഥാടനത്തിന് പോകുന്നവരെ കണ്ടെത്താൻ നറുക്കെടുപ്പ് രണ്ടുമണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ നടക്കും മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും

വിദ്യാഭ്യാസ് രംഗത്ത് ഗവൺമെന്റ് ഒരുക്കുന്ന ആധുനിക സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിദ്യാർഥികൾ പഠനത്തിൽ മികവ് പുലർത്തണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു പാലക്കാട് പട്ടഞ്ചേരി ഗവണ്മെന്റ് ഹൈസ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം ചർച്ച നടത്തി പരിഹരിക്കണമെന്ന് സി

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു ജനകീയ സമരത്തെ കണ്ടില്ലെന്നു നടിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പാട് കരിമണൽ ഖനനവിഷയത്തിൽ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി ജെ

വൃവസായ വകുപ്പാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടതെന്നും അവർ കൊല്ലത്ത് പറ ഞ്ഞു അശാസ്ത്രീയ ഖനനം പാടില്ലെന്ന നിലപാടാണ് ഗവൺമെന്റിനു ള്ളത് നിയമസഭാ പരിസ്ഥിതി സമിതി ശുപാർശകൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു

കരിമ ണൽ ഖനനം ആലപ്പാടിനെ തകർക്കുകയാണെന്നും എത്രയുംവേഗം ഖനനം അവസാനിപ്പിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം

ആലപ്പാടിനെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചതായി സമരക്കാർ പറയുന്നു

രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ഭീകരർക്ക് അവസരം നൽകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പ് വരുത്തിയതായി രാജ്യരക്ഷാ മന്ത്രി നിർമല സീതാരാമൻ പറഞ്ഞു

ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമല സീതാരാമൻ കാശ്മീരിലെ നൌഷേരയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച മേജർ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു

മറ്റൊരു ജവാനും അപകടത്തിൽ വീരമൃത്യു വരിച്ചിരുന്നു ലാംബെൽറ്റിലെ നിയ ന്ത്രണ രേഖയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികരെ ലക്ഷ്യംവെച്ച് തീവ്രവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെ റിച്ചായിരുന്നു അപകടം ലോക് സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന രണ്ടുദിവസത്തെ ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ഡൽഹിയിൽ സമാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭി സംബോധന ചെയ്യും കാർഷിക പ്രമേയവും സംഘടന രാഷ്ട്രീയ പ്രമേയങ്ങളും ഇന്ന് അവതരിപ്പിക്കും വരുന്ന പാർലിമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിഎസ്പിയും സമാജ് വാദി പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കും ലക്നൌവിൽ സമാജ് വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിഎസ്പി നേതാവ് മായാവതിയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യതാത്പര്യം പരിഗണിച്ചാണ് ഇരു പാർട്ടികളും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നതെന്നും മോദിക്കും അമിത്ഷാക്കും ഉറക്കമില്ലാ രാത്രിയായിരിക്കും ഇനിയുണ്ടാകുകയെന്നും അവർ പറഞ്ഞു ബിജെപിയുടെ വിഷലിപ്തമായ രാഷ്ട്രീയത്തിനെതിരായ കൂട്ടുകെട്ടാണിത് ബിഎസ്പിയും എസ്പിയും മുമ്പും സഖ്യം രൂപവത്കരിച്ചിട്ടുണ്ടെന്നും മായാവതി വ്യക്തമാക്കി സിഡ്നി ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചു

ഭാരതീയ വിചാ രകേന്ദ്രം വിവേകാനന്ദസേവാ പ്രവർത്തക സംഘം സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി എന്നി വയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടക്കും

ഇതിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകു പ്പിന്റെ ആർത്തവ ശരീരം ശാസ്ത്ര പ്രദർശനം മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി യിൽ പങ്കെടുക്കും വികസനപ്രവർത്തനങ്ങൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കു മെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു തിരുവല്ലയിൽ ബൈപ്പാസിന്റെ പുന രുദ്ധാരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൃത്യമായി പണി പൂർത്തിയാക്കുന്ന കരാറുകാർക്ക് കൃത്യമായിത്തന്നെ പണം നൽകും കൈക്കൂലി നൽകാത്തവരുടെ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന കാലം കഴി ഞ്ഞതായും ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും സുധാകരൻ വ്യക്തമാക്കി ഗോത്ര ജീവിക പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച സ്വാശ്രയ സംഘങ്ങളുടെ സംസ്ഥാനതല പ്രവർത്താനോ ദ്ഘാടനം നാളെ അട്ടപ്പാടി കോട്ടത്തറയിൽ മന്ത്രി എ

സംസ്ഥാനത്തെ പട്ടിക വർഗ്ഗ വിഭാഗക്കാർക്ക് തൊഴിൽ പരിശീലനം നൽകി വരുമാനവും ഉയർന്ന ജീവിത നിലവാരവും ഉറപ്പു വരുത്തുകയാണ് ഗോതജീവിക പദ്ധതിയുടെ ലക്ഷ്യം ഗോത്രബന്ധു പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്കുള്ള നിയമന ഉത്തരവ് ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും കോൺഗ്രസ്സിന്റെ നവോത്ഥാന പാരമ്പര്യം മറ്റൊരു പാർട്ടിക്കും അവ കാശപ്പെടാനാവാത്തതാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഗവൺമെന്റും സി

മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗ്ഗീയ തയെ വർഗീയതകൊണ്ട് നേരിടുകയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു കോഴിക്കോട് വ്യാഴാഴ്ച ആരംഭിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നാളെ സമാപിക്കും ഇന്നലെ പിവിധ ്സംവാദങ്ങളിലായി ശശിതരൂർ രാമചന്ദ്രഗുഹ അനിതനായർ ആനന്ദ് എൻഎസ്

സി കിഴക്കേമുറി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ന് സാഹിത്യ സംവാദങ്ങൾക്കുപുറമെ എൽ സുബ്രഹ്മണ്യ ത്തിന്റെ വയലിൻ കച്ചേരിയും അരങ്ങേറും തിയ്യ സമു ദാ യിത്തിന്റെ ക്ഷേത്രങ്ങളും മടപ്പു രകളും കഴകങ്ങളും പിടിച്ചെടുക്കാൻ മലബാർ ദേവസ്വംബോർഡ് ശ്രമിക്കുകയാ ണെന്ന് തിയ്യ മഹാസഭ സംസ്ഥാന ഭാരവാഹികൾ കുറ്റപ്പെടുത്തി സമുദാ യത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ തൊഴിൽ ആനുകൂല്യ ങ്ങൾ തിരിച്ചുനൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു തിയ്യ സമുദായത്തെ ഉപജാതിയായി കണക്കാക്കി അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കു കയാണെന്നും യോഗം കുറ്റപ്പെടുത്തി മലപ്പുറം എടപ്പാളിൽ എടിഎം കവർച്ചാ ശ്രമം നടന്നു എസ്ബിഐ എടിഎമ്മിലാണ് കവർച്ചാ ശ്രമമുണ്ടായത്

പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാക്ഷരത മിഷന്റെ ഭരണഘടനാ സന്ദേശയാത്ര മറ്റന്നാൾ കാസർകോ ട്ടുനിന്ന് ആരംഭിക്കും

ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളും മൂല്യങ്ങളും ജനങ്ങളിലേ ക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര മഞ്ചേശ്വരം ഗോവി ന്ദപൈ നഗറിൽ പി കരുണാകരൻ എം പി യാത്ര ഉദ്ഘാടനം ചെയ്യും പാലക്കാട് നെന്മാറയിൽ ഉരുൾപൊട്ടി വീടുകൾ തകർന്ന് മൂന്നു കുടുംബങ്ങൾക്ക് പേഴുംമ്പാറ ബത്ലഹേം കമ്മ്യുണിറ്റി സ്കൂൾ നിർമിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കും വൈകീട്ട് മൂന്നിന് നെന്മാറ വാക്കവിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീടുകളുടെ താക്കോൽ കൈമാറും ദേശീയത മാനവികത ബഹുസ്വരത എന്നീ സന്ദേശമുയർത്തി യുവ കലാസാഹിതി സംഘടിപ്പിക്കുന്ന സാംസ്കാരികയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തും നാദാപുരം വടകര കൊയിലാണ്ടി നടുവണ്ണൂർ എന്നി വിടങ്ങളിൽ ഇന്നും നാളെയുമായി യാത്രയ്ക്ക് സ്വീകരണം നൽകും ഏഴാമത് നാഷണൽ മിനിക്കോയ് ഫെസ്റ്റിന് തുടക്കമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ്ഖാൻ മിന്ക്കോയ് ദ്വീപിൽ മേള ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കെ

ഏഴരക്കിലോ കഞ്ചാവുമായി പെരുമ്പാവൂരിൽ രണ്ടുപേർ പൊലീ സിന്റെ പിടിയിലായി